രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവ് തുടരുന്നു

ട്രംപ് ബൈഡൻ പോരാട്ടം ശക്തം

സംസ്ഥാനത്തുടനീളം സുതാര്യവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ളതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എച്ച്

നക്സൽ ബാധിത മേഖലകളിൽ സമാധാനപരമായും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ആൻട്യ വിന്യസിച്ചിട്ടുണ്ട്

ഗുജറാത്ത് മധ്യപ്രദേശ് ് ഉത്തർപ്രദേശ് ഝാർഖണ്ഡ് കർണാടക ഒഡീഷ ഹരിയാന ഛത്തീസ്ഗഡ് തെലങ്കാന നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോവിഡ് മഹാമാരിയെത്തുടർന്ന് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രത്യേക മുൻകരുതലുകൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഒരു ദശ ലക്ഷത്തിലേറെ ജനവാസമുള്ള നഗരങ്ങളിലെ വായു ഗുണനിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശേഷി വർധിപ്പിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഈ തുക സഹായകരം ആകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ ട്വിറ്ററിൽ ക്ടുറിച്ചു

ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ രാഷ്ട്രങ്ങളായ മാലദ്വീപ് മൌറീഷ്യസ് സെയ്ഷിലീസ് മഡഗാസ്കർ കോമറോസ് എന്നിവയ്ക്ക് സഹായം എത്തിച്ച സാഗർ ദൌത്യത്തിന്റെ രണ്ടാം ഭാഗമാണിത് രണ്ടാംഘട്ടത്തിൽ സുഡാൻ ദക്ഷിണ സുഡാൻ ജിബൂട്ടി എറിത്രിയ എന്നീ രാഷ്ട്രങ്ങൾക്ക് ഐ

ഐരാവത് സഹായം എത്തിക്കും

ജെ പിയുടെ എട്ട് സ്ഥാനാർത്ഥികളും സമാജ്വാദി പാർട്ടിയിൽ നിന്നും ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്രമന്ത്രി ഹർദ്ദീപ് സിങ് പുരി അരുൺ സിംഗ് ഹരിദാർ ദുബെ ബ്രിജ്ലാൽ നീരജ് ശേഖർ ഗീതശാക്യ സീമ ദിവേദി ബി എൽ വർമ്മ എന്നിവരാണ് ബി ജെ പിയുടെ പുതിയ രാജ്യസഭാ അംഗങ്ങൾ സമാജ്വാദി പാർട്ടിയിലെ പ്രൊഫ രാം ഗോപാൽ യാദവ് ബി

പി യുടെ രംജി ഗൌതം എന്നിവരാണ് മറ്റ് അംഗങ്ങൾ

സംഗീതലോകത്തിന് വൻ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണം എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു യുവ സംഗീതജ്ഞർക്ക് വലിയൊരു ഗുരുവിനെയാണ് നഷ്ടമായതെനും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ ചെന്നൈയിലാണ് പത്മഭൂഷൻ ജേതാവ് കൂടിയായ ടി

കൃഷ്ണൻ അന്തുരിച്ചത്

കൃഷ്ണൻ ജനിച്ചത്

യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗവ്യാപനം വീണ്ടും വർദ്ധിക്കുകയാണ്

യുഎസ് പ്രസിഡൻറും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർഥിയുമായ ഡോണൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർഥിയായ ജോ ബൈഡനും തമ്മിലാണ് ് പോരാട്ടം വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ

റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർഥിയായി മൈക്ക് പെൻസ് മത്സരിക്കുമ്പോൾ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസാണ് ഡെമോക്രാറ്റിക്ക് പാർട്ടിയുടെ സ്ഥാനാർഥിയായി മത്സരിക്കുന്നത്

മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തപാൽ അട്ടക്കമുള്ള മുൻകൂർ വോട്ടിങ് സംവിധാനം പ്രയോജനപ്പെടുത്തിയവ്രുടെ എണ്ണം ഇത്തവണ കൂടുതലാണ് രാജ്യത്തെ പത്ത് കോടിയോളം വോട്ടർമാർ മുൻകൂർ വോട്ടിങ് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ

ന്യൂസ് ഡെസ്ക് ആകാശവാണി